പ്രതിരോധ രംഗത്തെ സഹകരണത്തിനായി ഇന്ത്യയും അമേരിക്കയും അഞ്ച് കരാറുകളിൽ ളപ്പുപ്പച്ചു

ഇന്നുമുതൽ പ്രവർത്തനം തുടങ്ങും

നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട്

നിലനിർത്തി സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയം

മഹാസഖൃത്തിൽ ആർ ജെ

ഐ എം

എൽ

ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ബിഹാറിൽ പ്രചരണത്തിനെത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്ന് വാൽമീകി നഗറിലും ദർഭൻഗയിലും സംസാരിക്കും

പ്രതിരോധ് ർംഗത്തെ സഹകരണത്തിന് ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള നാലാമത്തെ കരാറാണ് ബി

്രൂകൂയ്സ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളി ആയുധങ്ങളുടെ സ്ഥലപരമായ കൃത്യത ഉറപ്പുവരുത്തുന്നത്തിന്റായി അമേരിക്കയുടെ ജിയോസ്പേഷ്യൽ മാപ്പ് ഉപ്പ്യോഗിക്കാൻ ഇന്ത്യയ്ക്ക് അനുമതി നൽകുന്നതാണ് ഈ കരാ്ർ ടു പ്ലസ് ടു ചർച്ചകളുടെ ഭാഗമായി ആകെ അഞ്ച് കരാറുകളിലാണ് ഇരുരാജൃങ്ങളും ഒപ്പുവെച്ചത് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാരൃ മന്ത്രി എസ്

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പെറും അമേരിക്കയെ പ്രതിനിധീകരിച്ചു പങ്കെടുത്തു

എ കരാറിൽ ഒപ്പുവെക്കാനായത് സൂപ്രധാന നേട്ടമാണെന്നും പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഇരുരാജ്യങ്ങളും യോജിച്ചു പ്രവർത്തിക്കുമെന്നും ചർച്ചകൾക്കുശേഷം നടത്തിയ സംയുക്ത മാധ്യമ പ്രസ്താവനയിൽ ശ്രീ രാജ് നാഥ് സിംഗ് അറിയിച്ചു

കൃത്യമായ പരിശോധനകളും മികച്ച ചികിത്സയും രോഗമുക്തി നിരക്ക് വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗൃമന്ത്രാലയം അറിയിച്ചു

കേരളം മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്യുന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

ആശുപത്രിയിലേക്ക് ആവശൃമായ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്

ഇതിന്റെ ഭാഗമായി കൂടുത്ൽ സ്ഥലങ്ങളിലേക്ക് ഫ്ളൈറ്റുകളും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള താൽക്കാലിക വ്യോമപാത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദ്ദീപ് സിങ് പുരി അറിയിച്ചു

ബുധ്ഗാം ജില്ലയിലെ അരിബാഹ് ഗ്രാമത്തിലാണ് കഴിഞ്ഞ രാത്രി ഏറ്റുമുട്ടലുണ്ടായത് തീവ്രവാദി സാന്നിദ്ധ്യമുള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാസേന പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചത്

നിർണ്ണായകമായ സംസ്ഥാനങ്ങളിൽ ഇരുവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്

ആളുകൾ വലിയ രീതിയിൽ കൂട്ടം കൂടുന്നവ ഒഴികെയുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും ഇതിനകം അനുമതി നൽകിയിട്ടുണ്ട് മെട്രോ ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രകളിലും ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും അടക്കം കാത്തുസൂക്ഷിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കിയിരുന്നു

ശിവശങ്കർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന് ഉണ്ടായേക്കും

ഇന്ന് തിരുവനന്തപുരം പത്ത്മ്നാ്തിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ട്പ്രിഖ്യാ്പിച്ചിട്ടുണ്ട്

എൽ ക്രിക്കറ്റിൽ അവസാന നാലിൽ പ്രതീക്ഷ നിലനിർത്തി സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയം

എല്ലിൽ ഇന്ന് അബുദാബിയിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടും

ഇന്നലെ മുഖ്യമന്ത്രിയുടെയും വിവിധ മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം